ഇവരെ പുലർച്ചെ സ്റ്റേഷൻ ജാമൃത്തിൽ വിട്ടയച്ചു തീർത്ഥാടകർ കടക്കാതെ പൊലീസ് ബാരിക്കേഡ് കെട്ടിത്തിരിച്ച സ്ഥലത്ത് രാത്രി പത്തിന് ശ്രേഷമായിരുന്നു നാമജപം തുടങ്ങിയത് വിലക്ക് ലംഘിച്ച് പ്രതിഷേധം നടത്തിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പൊലീസ് പറഞ്ഞു ബി ജെ പി സംഘപരിവാർ നേതാ ക്കളാണ് ഇതിന് നേതൃത്വം നല്കിയതെന്നും പൊലീസ് അറിയിച്ചു

സുരേന്ദ്രനെ ഇന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും നാളെ അദ്ദേഹത്തെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും

ചെങ്ങ ന്നൂർ കോട്ടയം എറണാകുളം റെയിൽവെ സ്റ്റേഷനുക ളിൽ നിന്നാണ് പരീക്ഷണാർത്ഥം സർവീസ് ആരംഭിക്കു ന്നത് റെയിൽവെ സ്റ്റേഷനുകൾ കൂടാതെ തീർത്ഥാടകർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും സർവീസ് ആരം ഭിക്കും മലബാർ മേഖലയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി ശബരിമലയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ലലലലലലലലലലലലല അയോ ധൃ യിൽ രാമ ക്ഷേത്ര നിർമ്മാണത്തിന് നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്ത് ഇന്ന് ധർമ്മസഭ സംഘടിപ്പിക്കും സന്യാസിമാരുൾപ്പെടെ മൂന്ന് ലക്ഷം പേർ ധർമ്മസഭയിൽ പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കേന്ദ്രങ്ങൾ അയോധ്യയിൽ അറിയി ച്ചു

തർക്ക സ്ഥലം അടക്കം പല മേഖലകളായി തിരിച്ച് പൊലീസി നെയും അർദ്ധസൈനികരെയും വിന്യസിച്ചു അഞ്ച് കമ്പനി ദ്രുതകർമ്മ സേനയും ഭീകരവിരുദ്ധ സേനയും കമാൻഡോകളും രംഗത്തുണ്ട്

അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് നിയമനിർമ്മാണമോ ഓർഡിനൻസോ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗവൺമെന്റ് ക്ഷേത്രനിർമ്മാണം പ്രഖ്യാ പിക്കണമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു

പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാ നാണ് ലോക്സഭാ തെര്ഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാമക്ഷേത്ര നിർമ്മാണ പ്രശ്നം ഉയർത്തിക്കൊണ്ടു വരു ന്നതെന്ന് മുൻ മുഖ്യമന്ത്രിയും ബി എസ് പി അധ്യക്ഷയുമായ മായാവതി കുറ്റപ്പെടുത്തി ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശൃമുണ്ടെങ്കിൽ അഞ്ച് വർഷം കാത്തി രുന്നതെന്തിനാണെന്ന് അവർ ലഖ്നൌവിൽ ചോദിച്ചു

ഇതിനെ ചെറുക്കാൻ സമൂഹം ഒന്നിച്ചുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യറിയുടെയും എക്സിക്യു ട്ടീവിന്റെയും നിയമനിർമ്മാണസഭയുടെയും ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളുടെയും മതേതര സ്വഭാവം നില നിർത്തേണ്ടത് സമാധാനത്തിനും ഐക്യത്തിനും ആവ ശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ പ്രണബ് മുഖർജി ഫൌണ്ടേഷൻ സംഘട്ടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോ മൻമോഹൻസിംഗ്

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും ദൂരദർശൻ ചാന്ലുകളും മൻ കി ബാത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്

പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാലുടൻ ഇതിന്റെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി എട്ടിന് പുനഃപ്ര ക്ഷേപണമുണ്ടാകും

ഓഫീസ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

കേരളത്തെ പൂർണ്ണമായും തകർക്കാൻ ബോധപൂർവൃം ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു കണ്ണൂർ കരിവെള്ളൂർ സർവീസ് സഹക രണ ബാങ്കിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു പിണറായി

പയ്യന്നൂർ വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷി ക്കുന്നതിനായി ജനത ചാരിറ്റബിൾ സൊസൈറ്റി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കുമായി ചേർന്ന് ആവിഷ്ക്കരിച്ച വായ്പാ പദ്ധതി മാതൃകാപരമാ ണെന്നും ഇത് വ്യാപിപ്പിക്കുന്നത് ആലോചിക്കാവു ന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കന്നട നടനും മുൻകേന്ദ്രമന്ത്രിയുമായ എം എച്ച് അംബരീഷ് ബംഗളൂരുവിൽ അന്തരിച്ചു ഹൃദയാഘാ തത്തെ തുടർന്ന് ഇന്നലെ രാത്രി സ്ഥകാര്യ ആശുപത്രി യിലായിരുന്നു അന്തൃം

കർണ്ണാടകയിൽ സിദ്ധരാമയ്യ ഗവൺമെന്റിൽ പാർപ്പിട മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് മാണ്ഡ്യയിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭാംഗമായി

രാവിലെ എട്ടിന് അംബരീഷിന്റെ ഭൌതികദേഹം ബംഗ ളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ പൊതുദർശ നത്തിനു വെയ്ക്കുമെന്ന് കർണ്ണാടക മുഖ്യമന്ത്രി കുമാര സ്വാമി അറിയിച്ചു

പരമ്പരയിലെ മൂന്നാ മത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് സിഡ്നി യിൽ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കായിരുന്നു ജയം രണ്ടാം മത്സരം മഴമൂലം ഉപേക്ഷിച്ചു ഇന്ന് ജയിച്ച് പരമ്പര സമനിലയിലാക്കാനാണ് ടീം ഇന്ത്യയുടെ ശ്രമം ലഖ്നൌവിൽ നടക്കുന്ന സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ചാമ്പൃൻഷിപ്പിൽ ഇന്ത്യയുടെ സൈനാ നെഹ്വാളും സമീർ വർമ്മയും ഫ്രൈനലിൽ പ്രവേശി ച്ചു വനിതാവിഭാഗത്തിൽ മൂന്ന് തവണ ജേതാവായ സൈന ഇൻഡോനേഷ്യയുടെ ഹുസ്സേലി ഹർത്താവനെ യാണ് തോൽപ്പിച്ചത് പുരുഷവിഭാഗത്തിൽ നിലവിലെ ചാമ്പൃനായ സമീർ വർമ്മ ഇൻഡോ നേഷ്യൻ താരത്തെ യാണ് പരാജയപ്പെടുത്തിയത്

സംസ്ഥാന കായിക യുവജനകാരൃ മന്ത്രാലയത്തിന്റെ ഗ്രാസ്റൂട്ട് ലെവൽ ഫുട്ബോൾ പരിശീലന പദ്ധതിയായ കിക്കോഫ് കണ്ണൂർ കല്ല്യാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

നാവിക വാരാലോഷത്തോടനുബന്ധിച്ച് കൊച്ചി നേവി മാരത്തോണിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് പുലർച്ചെ തുടക്കമായി ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ അനിൽകുമാർ ചാവ്ല ഫ്ളാഗ് ഓഫ് ചെയ്തു

കണ്ണൂരിൽ നടക്കുന്ന ശാസ്ത്രോത്സ്വത്തിൽ ശാസ്ത്രമേളയിലും സാമൂഹ്യ ശാസ്ത്രം ് ഐടി മേളകളിലും മലപ്പുറം ജില്ല മുന്നിലെത്തി ഗണിതശാസ്ത്രമേളയിൽ കോഴിക്കോടാണ് മുന്നിൽ മേള് ഇന്ന് സമാപിക്കും

കോഴിക്കോട് ചെറുവണ്ണൂർ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയുടെയും മോഡൽ അഗ്രോ സർവീസ് സെന്ററി ന്റെയും ഗ്രാമശ്രീ എ ഗ്രേഡ് ക്ലസ്റ്റർ വിപണനകേന്ദ്രത്തി ന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായി രുന്നു അദ്ദേഹം കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഫല വൃക്ഷതാകൾ നട്ടുപിടിപ്പിക്കുക തെങ്ങിന്റെ തടം തുറ ക്കുക ജൈവവളങ്ങളും ജൈവകീടനാശിനികളും ന്നൽകുകും

നിർമ്മാണം

പ്രവർത്തന ങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ലേബർ ബജറ്റിൽ മാറ്റം വരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപ നങ്ങൾക്കു നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു

തദ്ദേൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടികൾ പരിശോധിച്ച് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് അടിസ്ഥാന സൌകര്യ വികസനം ഒരുക്കുന്നതിനാണ് ഗവൺമെൻറ് പ്രാധാനൃം നൽകുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു

പി റോഡ്ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വികസനകാര്യത്തിൽ അവഗണിക്കപ്പെട്ട ജില്ലയായിരുന്നു കണ്ണൂർ എന്നാൽ ഇന്ന് കണ്ണൂർ മുന്നോട്ടു കുതിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു വ്യാപാരത്തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നടപടികളാണ് ലീഗ ൽ മെട്രോളജി വകുപ്പ് സ്വീകരിച്ച് വരുന്നതെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു കണ്ണൂർ മട്ടന്നൂരിൽ ഇരിട്ടി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഓഫീസിന്റെയും സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വില വർധിപ്പിക്കുകയും തൂക്കത്തിൽ കള്ളത്തരം കാണിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ മേഖലകളിലും തുലൃത് നേടാനാണ് സ്ത്രീകൾ ശ്രമിക്കേണ്ടതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലം ആദിച്ചനല്ലൂരിൽ സി

എസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നവോത്ഥാന നായകർ ഏറെ പൊരുതിയാണ് നമ്മുടെ നാടിനെ ഇന്നത്തെ നിലയിലെത്തിയതെന്നും അവർ കൈമാറിയ നേട്ടങ്ങൾ വരും തലമുറയ്ക്ക് നൽകാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ലൈഫ് പദ്ധതിയിൽ നിർമിച്ച ആറു വീടുകളുടെ താക്കോൽദാനവും ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അനുബന്ധ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു

സിപിഐ എം ജനമുന്നേറ്റ ജാഥയുടെ രണ്ടാംദിവസത്തിലെ സമാപ്പന യോഗം തിരൂർ കൂട്ടായിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കോഴിക്കോട് കക്കോടി ഗ്രാമപഞ്ചാ യത്ത് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആർദ്രം മിഷൻ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഹോമിയോ ആയുർവ്വേദ ആശുപത്രികൾ ഹൈടെക്ക് ആക്കാൻ നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു

മികച്ച എമർജിംഗ് യൂണിവേഴ്സിറ്റിക്കുളള പുരസ്കാരം വയ നാട് കേരള വെറ്റിനറി ആന്റ് ആനിമൽ ഹസ്ബന്ററി സർവകലാശാലയ്ക്ക് ലഭിക്കും മികച്ച സർവകലാശാലകൾക് അഞ്ചുകോടി രൂപയും എമർജിംഗ് യൂണിവേഴ്സിറ്റിക്ക് ഒരു കോടി രൂപയും സമ്മാനമായി ലഭിക്കും